തുറക്കും

വിക്കറ്റ് വിജയം

അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ശബരിമലയിലും പമ്പയിലൂർ പൊലീസ് കാവൽ ശക്തം

ഇന്ന് പ്രത്യേക പൂജകൾ ഉണ്ടാവില്പ്

സ്ത്രീകൾക്കും സുപ്രീം കോടതി പ്രവേശനം അനുവദിച്ച ശേഷം ഇത് രണ്ടാം തവണയാണ് നട തുറക്കുന്നത്

വെള്ളിയാഴ്ച വരെ പത്രിക സമർപ്പിച്ചു

സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ മുതിർന്ന നേതാക്കന്മാർ സംസ്ഥാനത്ത് സന്ദർശനം നടത്തുകയാണ്

ആഫ്രിക്കൻ രാജ്യമായ മലാവി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി ലിലോങ്വേയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ സമൂഹത്തോട് സംസാരിക്കുകയായിരുന്നു തങ്ങളുടെ പുരോഗതിയിൽ മലാവിയിലെ ജനങ്ങളെ കൂടി ഒപ്പംകൂട്ടാൻ അദ്ദേഹം ആവശൃപ്പെട്ടു സന്ദർശനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് മലാവി പ്രസിഡന്റ് പീറ്റർ ആർതർ മുതരികയുമായി ഉപരാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും

ഇന്ത്യ മലാവി ബിസിനസ് മീറ്റിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും

റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി വിജേഷ്

ഓഹരി വിപണി നിയന്ത്രിക്കുന്ന പരമോന്നത ഏജൻസിയായ സെബിയുടെ സഹായവും ആർ ബി ഐ തേടും കോർപ്പറേറ്റ്കാര്യ മന്ത്രാലയം ചരക്ക് സേവന ശൃംഖല എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവരവും പട്ടിക തയ്യാറാക്കുന്നതിനായി ശേഖരിയ്ക്കും ബാങ്കുകൾക്കും ധനകാരൃ സ്ഥാപനങ്ങൾക്കും വായ്പ അനുവദിക്കുന്നതിന് മുന്നോടിയായി ഇടപാടുകാരനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും രജിസ്ട്രറിയിൽ നിന്ന് ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കടമെടുത്ത് മുങ്ങുന്നിപ്പുരെ കണ്ടെത്തുന്നതിനായി വായ്പയെടുക്കുന്ന്വരുടെ രജിസ്ട്രറി തയ്യാറാക്കുമെന്ന് ജൂണിലാണ് ആർബ്ബി ഐ അറിയിച്ചത് ന്യൂസ്ഡെസ്ക് ആകാശവാണി

രണ്ട് ദിവസം മുമ്പ് ഒരു വനിതാ കോൺസ്റ്റബിൾ മരിച്ചതിനെ തുടർന്ന് പൊലീസുകാർ മുതിർന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിലാണ് നടപടി ഡെങ്കിപ്പനി ബാധിച്ച വനിതാ കോൺസ്റ്റബിളിന് അവധി നിഷേധിച്ചെന്നാണ് ആരോപണം ഇതിൽ പ്രതിഷേധിച്ച് പൊലീസുകാർ ഓഫീസും കാർട്ടേഴ്സ് ആക്രമിക്കുകയും മുതിർന്ന ഉദ്യോഗസ്ഥരെ കൈയ്യേറ്റം ചെയ്യുകയും ചെയ്തെന്നാണ് പരാതി

കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി വൈകുന്ന സാഹചര്യത്തിൽ ചില ദേശീയ പാതകളുടെ അറ്റകുറ്റപ്പണിയും സംസ്ഥാന ഗവൺമെന്റ് നടത്തുകയാണെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

റെനിൽ വിക്രമസിംഗയെ പുറത്താക്കി മഹീന്ദ രാജപക്സെ പുതിയ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു പിന്നാലെ രാജ്യത്ത് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ തുടരുകയാണ് പാർലമെന്റിൽ തനിക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് റെനിൽ വിക്രമസിംഗെ അവകാശപ്പെടുന്നു

പ്രതിനിധിസഭയിലേക്കും സെനറ്റിലേക്കുമുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പ് നാളെ നടക്കും

റ്റ് നില്പിൽ സെനറ്റിലും പ്രതിനിധിസഭയിലും ട്രംപിന്റെ റീപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് ഭൂരിപക്ഷമുള്ളത്

ബൌളർമാരെ തുണച്ച പിച്ചിൽ ദിനേശ് കാർത്തിക്കിന്റെ പോരാട്ടമാണ് ഇന്ത്യയ്ക്ക് ജയം സമ്മാനിച്ചത് കൂടുതൽ വിവരങ്ങളുമായി വിജേഷ്

നായകൻ രോഹിത് ശർമ്മ ശിഖർ ധവാൻ ഋഷഭ് പന്ത് എന്നിവർക്ക് രണ്ടക്കം കടക്കാനായില്ല

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നാലാംദിനം ഹൈദരാബാദ് ബാറ്റ്സ്മാൻമാരെ കീഴടക്കാൻ കേരളത്തിനു കഴിഞ്ഞില്ല മത്സരം സമനിലയായി

കടൽ പ്രക്ഷുബ്ധമാകാനിടയുള്ളതിനാൽ അടുത്ത മൂന്നു ദിവസം മത്സ്യബന്ധനത്തിനു പോകരുതെന്ന് നിർദ്ദേശമുണ്ട്

ജെ

ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ അധ്യക്ഷനും ഉപാധ്യക്ഷനുമെതിരെ യു ഡി

ജെ പ

ഡി എഫ്

എം

വെൽഫെയർ പാർട്ടി അംഗം അവിശ്വാസപ്രമേയ നോട്ടീസിൽ ഒപ്പിട്ടിരുന്നു

നിരോധിക്കപ്പെട്ട പടക്കങ്ങളുടെ വിൽപ്പന അനുവദിച്ചുകൂടാ

എന്നാൽ ഇറാനെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ് ഉപരോധം അടുത്ത ആഴ്ച തുടങ്ങാനിരിക്കെ ഇന്ധനവില വീണ്ടും വർദ്ധിക്കുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ